ഇന്ന് പരിഗണിക്കും നാലുവർഷത്തെ നരേന്ദ്രമോദി ഭരണത്തിൽ ജനജീവിതം ദുസ്സഹമാ യെന്ന് സി പി ഐ എം

രാജഗോപാൽ ഇടുക്കി ജില്ലയിൽ യു ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു സംസ്ഥാനത്ത് പുതിയ റേഷൻ കാർഡിന് ഇന്നുമുതൽ അപേക്ഷ സ്വീകരിക്കും ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് പ്രീ കാർട്ടറിൽ കൊളംബിയ നോക്കൌട്ട് സാധ്യത നിലനിർത്തി ജപ്പാൻ സെനഗൽ മത്സരം സമനില യിൽ

ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നതിനെതിരെ പ്രതിപക്ഷം രംഗത്തു വന്നിട്ടുണ്ട് അവശേഷിക്കുന്ന വയലുകൾ മുഴുവൻ നികത്താൻ സൌകര്യം ചെയ്യുന്ന ഭേദഗതികളാണ് നിയമത്തിൽ വരുത്തിയിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത് അബ്കാരി നിയമ ഭേദഗതി ബില്ലും ഇന്ന് സഭ പരിഗണിക്കും

സയൻസസിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി എ

വാജ്പേ യിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു

നാലു വർഷത്തെ നരേന്ദ്രമോദ്യി ഭരണത്തിൽ ജനജീവിതം ദുസ്സ ഹമായെന്നും കടുത്ത വർഗ്ഗീയ ധ്രുവീകരണമുണ്ടായെന്നും ന്യൂഡൽഹി യിൽ സമാപിച്ച സി പി ഐ എം കേന്ദ്രകമ്മിറ്റിയോഗം കുറ്റപ്പെടുത്തി ജനാ ധിപത്യ സ്ഥാപനങ്ങളെയും ഭരണഘടനയെയും ദുർബലപ്പെടുത്തിയെന്നും ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കുമെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചുവെന്നും യോഗം ആരോപിച്ചു കാർഷികപ്രതിസന്ധിയും കർഷക ആത്മഹത്യ യും വർദ്ധിക്കുകയാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു കോർപറേറ്റുകൾ പൊതു ജനങ്ങളുടെ പണം കൊള്ളയടിക്കുകയാണ് മോദി ഗവൺമെന്റിന്റെ ആദ്യ മൂന്നുവർഷങ്ങളിൽ കോർപറേറ്റുകളുടെ രണ്ടര ലക്ഷം കോടി കിട്ടാക്കടം എഴുതിത്തള്ളിയെന്നും ഇതിനുപുറമെ ഒരു ലക്ഷത്തി നാല്പത്തി നാലായി രത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ എഴുതി തള്ളിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ടെന്നും യോഗം കുറ്റപ്പെടുത്തി

സിന്ധുവിനെ ഉൾപ്പെടുത്തി

യു ദേശീയ സെക്രട്ടറിയാണ് സിന്ധു

കോൺഗ്രസ് പ്രവർത്തകസമിതി അംഗം എ

ആന്റണി ഉദ്ഘാടനം ചെയ്യും ് നരേന്ദ്രമോദി ഗവൺമെന്റിന് കേരളത്തോട് വിരോധമാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന അടിസ്ഥാനമില്ലാത്തതാ ണെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ എം എൽ എ പറ ഞ്ഞു പിണറായി വിജയന്റെ മോദി വിരോധം മാത്രമാണ് പ്രസ്താവനയ്ക്കു പിന്നിലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു സി പി ഐ എം കേന്ദ്രകമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി പ്പോയതെന്നും ഇഷ്ടമുള്ളപ്പോൾ ഓടിച്ചെന്ന് കുശലാനേഷണം നടത്താവുന്ന സ്ഥാനമല്ല പ്രധാനമന്ത്രിയുടേതെന്നും രാജഗോപാൽ അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രി ഉന്ന യിക്കുന്ന വിഷയം വകുപ്പുമന്ത്രിക്ക് കൈകാരൃം ചെയ്യാവുന്നതേയുള്ളൂവെ ന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത് കേരളത്തിന് ആവശ്യമായ കാര്യം സാധിച്ചെടുക്കുകയായിരുന്നു ഉദ്ദേശൃമെങ്കിൽ മുഖൃമന്ത്രി കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ കാണണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തോട് കേന്ദ്രം കാണിക്കുന്ന വിവേചനം അവസാ നിപ്പിക്കണമെന്ന് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ ആവ ശൃപ്പെട്ടു പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെന്റും കടുത്ത രാഷ്ട്രീയ വിദ്ധേഷം മനസ്സിൽവെച്ച് സംസ്ഥാനത്തോട് ചിറ്റമ്മ നയമാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു സംസ്ഥാന ഭരണത്തലവനായ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയെ കാണാൻ അവസരം നൽകാത്തത് ഫെഡ റൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണെന്ന് എൽ ഡി എഫ് കൺവീ നർ വെളിപ്പെടുത്തി

വീരേന്ദ്രകുമാർ എം

കോഴിക്കോട്ട് പറഞ്ഞു

തൊടുപുഴ താലൂക്കിനെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് യു ഡി എഫ് ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേരും

ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും സംസ്ഥാനത്ത് പുതിയ റേഷൻ കാർഡിന് ഇന്നു മുതൽ അപേക്ഷ സ്വീകരിക്കും മറ്റൊരു താലൂക്കിലേക്ക് റേഷൻ കാർഡ് മാറ്റുന്നതിനും പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനും തെറ്റുകൾ തിരുത്തുന്നതിനും അപേക്ഷ സമർപ്പിക്കാം ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസിലാണ് അപേക്ഷ നൽകേണ്ടത് ് ് ് ് ് ് ് ് കേന്ദ്ര ഗവൺമെന്റിന്റെ സച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായി നട ത്തിയ ശുചിത്വ സർപ്പെയിൽ പാലക്കാട് ന്ഗരസഭ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ആലപ്പുഴ കൊല്ലം നഗരസഭകളാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ

പോളണ്ടിനെ എതിരി ല്ലാത്ത മൂന്നു ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ട് സാധ്യത നിലനിർത്തി ജപ്പാനും സെനഗലും തമ്മിൽ നടന്ന മത്സരം ഇരു ടീമുകളും രണ്ടു ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു ലോകകപ്പിന്റെ മൂന്നാം റൌണ്ട് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനക്കാരെയും രണ്ടാം സ്ഥാനക്കാരെയും ഈ മത്സരങ്ങൾ നിർണ്ണയിക്കും

നോക്കൌട്ടിലേക്ക് ആരൊക്കെ എത്തുമെന്ന് ഇന്നു മുതൽ അറിയാം

ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യക്ക് തുടർച്ചയായ രണ്ടാം ജയം നെതർലാന്റ് സിലെ ബ്രഡയിൽ നടക്കുന്ന മത്സരത്തിൽ ഒളിമ്പിക് ചാമ്പ്യൻമാരായ അർജന്റീനയെ ഒന്നിനെതിരെ രണ്ടു ഗോളുകൾക്കാണ് ഇന്ത്യ കീഴടക്കിയത് ഇതോടെ പോയന്റ് നിലയിൽ ഇന്ത്യ ഒന്നാമതെത്തി

ഉത്പാദിപ്പിച്ച് കേരളത്തെ സാമ്പത്തിക ഭക്ഷ്യ സമൃദ്ധിയിലേക്ക് നയിക്കാൻ സ്ത്രീകൾ മുന്നിട്ടിറ ങ്ങണമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു മൃഗസംരക്ഷണ വകുപ്പും കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ് ബോർഡും സംയുക്തമായി കൊല്ലത്ത് സംഘടിപ്പിച്ച വനിതാ സംരംഭകത്വ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഡന്റായി മോഹൻലാലും ജനറൽ സെക്രട്ടറിയായി ഇടിവേള ബാബുവും ചുമതലയേറ്റു

നടിയെ ആക്രമിച്ച കേസിൽ അമ്മയിൽ നിന്നു പുറ ത്താക്കിയ നടൻ ദിലീപിനെ തിരിച്ചെടുക്കാനും യോഗം തീരുമാനിച്ചു ദിലീ പിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത് സാങ്കേതികമായി നിലനിൽക്കി ല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തിരിച്ചെടുത്തത്

തിരിച്ചുപിടിക്കുമെന്ന് പ്രസിഡന്റ് എ പദ്മകുമാർ പറഞ്ഞു തിരുവിതാ കൂർ ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ വാർഷിക പൊതുയോഗം പത്തനംതിട്ട റാന്നിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തകർച്ച നേരിടുന്ന ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുമെന്നും വാസ്തുശാസ്ത്രപരമായിട്ടല്ലാതെ ശബ രിമലയിൽ പണിത കെട്ടിടങ്ങൾ പൊളിച്ചുനീക്കുമെന്നും പദ്മകുമാർ അറി യിച്ചു

എന്ന സോമൻ കടലുണ്ടി കോഴിക്കോട്ട് നിര്യാതനായി

യുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കറെ തോയ്ബ ഡിവിഷണൽ കമാന്റർ ഉൾപ്പെടെ രണ്ട് ഭീകരർ കൊല്പപ്പെട്ടു പ്രദേശത്തെ ഒരു വീട്ടിൽ ഒളിച്ചിരുന്ന ഭീകരരെ തുരത്തുന്നതിന് സംയുക്ത സംഘം വീട് വളഞ്ഞപ്പോഴാണ് ഏറ്റു മുട്ടലുണ്ടായത്

ഡ്രൈവർക്ക് ട്രാക്ടറിന്റെ നിയന്ത്രണം നഷ്ട പ്പെട്ടതിനെ തുടർന്ന് മുസി നദി കനാലിലേക്ക് മറിയുകയായിരുന്നുവെന്ന് പൊലീസ് അറിയിച്ചു

സ്വർണ്ണവും രണ്ടു ലക്ഷം രൂപയും കവർന്ന കേസിൽ രണ്ടുപേരെ പൊലീസ് അറസ്റ്റ് ചെയ്തു

ഇവരിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണവും കണ്ടെടുത്തു

പത്തനംതിട്ട ജില്ലാ പൊലീസ് മേധാവിയുടെ ഓഫീസിലെ സാമ്പ ത്തിക ക്രമക്കേട് അന്വേഷിക്കാൻ ഗവൺമെന്റ് ഉത്തരവിട്ടു വായ്പകളും മറ്റും തിരിച്ചടയ്ക്കുന്നതിനായി പൊലീസുകാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച തുകയിലും പെറ്റി കേസിൽ കിട്ടിയ തുകയിലും ക്രമക്കേട് നടന്നതായി സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം